തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ന്യൂഡൽഹിയിൽ സർവ്വകക്ഷിയോഗം ചേരും

ചരിത്ര നേട്ടം

മറ്റ് സുപ്രധാന വിഷയങ്ങളിലും കമ്മീഷൻ പാർട്ടികളുടെ അഭിപ്രായം തേടും വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തി ലാണ് യോഗം വോട്ടർപ്പട്ടിക തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയുടെ വിശ്വാ സ്യത സുതാര്യത എന്നിവ യോഗത്തിൽ ചർച്ചാ വിഷയമാകും

ഗവർണറുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ച യിലാണ് ശ്രീ

്ധ്നസഹായത്തിന് പുറമെ ഭക്ഷണം വെള്ളം മറ്റ് അവശ്യ പ്പസ്തൂക്കൾ എന്നിവയും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് പ്രളയക്കെടുതി നേരിടുന്നതിൽ രാഷ്ട്രം ഒറ്റക്കെട്ടായി കേരളത്തോടൊപ്പ് മുണ്ടെന്നും മൻ കി ബാത്ത് പരിപാടിയിൽ സംസാരിക്കുവെ പ്രധാനമന്ത്രി പറഞ്ഞു ധനസഹായം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗുമായി ഗവർണ്ണർ കൂടിക്കാഴ്ച നടത്തി കേരളത്തിന് അടിയന്തര സഹായം ഉടൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി

പോലീസ് സേനകളുടെ വളർച്ചയ്ക്കായി രാജ്യത്തെ സ്ഥകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭാവി വെല്ലുവിളികൾക്കെതിരെ സംയുക്തമായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പോലീസ് സംവിധാനം ആധുനികവത്കരിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇതിൽ സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്നും ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു അഭിപ്രായപ്പെട്ടു

കുടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഡി എ

കഴിഞ്ഞ നാലുവർഷമായി സ്വീകരിക്കുന്ന നിശ്ചയദാർഡ്യത്തോടെയുള്ള നടപടികൾ ഇന്ത്യയെ മറ്റുരാ ജൃങ്ങൾക്കൊപ്പം എത്തിച്ചുവെന്നും ധനമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്ര നാണയ നിധിയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ധനമന്ത്രിയുടെ പ്രതികരണം അന്താരാഷ്ട്ര നാണയ നിധി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ നോട്ട് നിരോധനം ചരക്ക് സേവന നികുതി എന്നിവ ഇന്ത്യൻ സമ്പദ് വൃവസ്ഥയിൽ കൊണ്ടുവന്ന ഫലങ്ങളും ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ നാലു വർഷത്തിനിടെ പരിഷ്കാരങ്ങളുടെ പരമ്പര തന്നെയുണ്ടായിട്ടുള്ളതായി ശ്രീ

പണപ്പെരുപ്പം ധനക്കമ്മി അടിസ്ഥാന സൌകര്യ വികസനം ഊർജ്ജമേഖല പ്രകൃതി വിഭവങ്ങൾ തുടങ്ങിവയുടെ കാരൃത്തിലുള്ള പ്രതിസന്ധികൾ കഴിഞ്ഞ യു

എ ഗവൺമെന്റിന്റെ വീഴ്ചകളുടെ ഫലമാണെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി

എഫ് റിപ്പോർട്ടുകൾ ഇക്കാരൃം സ്ഥിരീകരിക്കുന്നുപ്പെന്നും ശ്രീ

വളർച്ചയുടെ പാതയിലായിരുന്ന സമ്പദ്വ്യവസ്ഥയെ ബിജെപി ഭരണം തളർച്ചയിലേക്ക് തള്ളി വിട്ടതായി കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

റാണിക്കോർ മണ്ഡലത്തിലെ യു ഡി പി സ്ഥാനാർത്ഥിച്ച പയസ് മാർവിനെതിരെ എൻ

പി സ്ഥാനാർത്ഥി മാർട്ടിൻ എം ഡാൻകോ മുവായിരത്തിൽ പരം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട്

ഇവർ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ കള്ളനോട്ടുകൾ വിതരണം ചെയ്തതായി സമ്മതിച്ചിട്ടുണ്ടെന്ന് പോലീസ് സൂപ്രണ്ടന്റ് ഓംബിർ സിംഗ് അറിയിച്ചു നോട്ടുകൾക്കു പുറമെ ഒരു പ്രിന്റിംഗ് മെഷിനും ഒരു കാറും ബൈക്കും പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു

താമസത്തിനു മുൻപ് ചെളി നീക്കു ന്നത് മാത്രമല്ല അണുനശീകരണ പ്രവർത്തനങ്ങൾ കൂടിവെള്ള ലഭ്യത രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയവയും ശ്രദ്ധിക്കേ ണ്ടതാണ്

സംസ്ഥാനത്തിന്റെ വിവിധഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്കുള്ളിൽ നിന്നും ഇരുപതിനായിരത്തോളം സന്നദ്ധ പ്രവർത്തകർ ഈ ശുചീകരണ യജ്ഞത്തിൽ പ്രങ്കെടുക്കും

ഡൽഹി ഇന്ദിരാഗാന്ധി എയ്ർപോർട്ടിൽ എത്തിയ വിമാനത്തെ കേന്ദ്ര മന്ത്രിമാരായ നിതിൻഗഡ്കരി ധർമ്മേന്ദ്ര പ്രധാൻ സുരേഷ് പ്രഭു തുടങ്ങിയവർ സ്വീകരിച്ചു ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയമാണ് വിമാനത്തിനാവശ്യമായ ജൈവ ഇന്ധനം രൂപപ്പെടുത്തിയത്

ബുധനാഴ്ച കംബോഡിയയിലേക്കു പോകുന്ന സുഷമ സ്വരാജ് കംബോഡിയൻ വിദേശകാര്യ മന്ത്രി പ്രാക് സോഖോന്നു മായി ഉഭയകക്ഷി ചർച്ച നടത്തും

സുഷമസ്വരാജിന്റെ ആദ്യ കംബോഡിയ സന്ദർശനമാണിത്

മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ രാജ്യത്തും വിദേശത്തുമുള്ള നിരവധി ടൂർ ഓപ്പറേറ്റർമാർ പങ്കെടുക്കും

തങ്ങൾക്കെതിരെ ഇത്ത്രം ്നടപടികൾ പ്രഖ്യാപിക്കാൻ അമേരിക്കയ്ക്ക് അധികാരമില്ലെന്നൂര് ഇതുമൂലം തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം വേണമെന്നും ടെഹ്റാൻ വൃക്തമാക്കി

നൻഗാർഗഡിൽ ഭീകര കേന്ദ്രങ്ങൾക്കുനേരെ ഇന്നലെ നടത്തിയ ആക്രമണത്തിലാണ് അബുസാദ് കൊല്ലപ്പെട്ടതെന്ന് അഫ്ഗാൻ ദേശീയ സുരക്ഷാ വിഭാഗം സ്ഥിരീകരിച്ചു

സംഘത്തിലെ പത്ത് ഭീകരർ കൂടി കൊല്ലപ്പെട്ടതായി സുരക്ഷാ വിഭാഗം അറിയിച്ചു രണ്ടു കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി ആയുധങ്ങളും വെടി ക്കോപ്പുകളും കണ്ടെടുത്തു ജലഹബാദ് നഗരത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുന്നിൽ നടന്ന ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഐ

ഇതിനെതുടർന്നാണ് ഐ എസ് കേന്ദ്രങ്ങളിൽ സുരക്ഷാസേന ആക്രമണം നടത്തിയത്

ലോക ഒന്നാം നമ്പർ താരം തായ് സു യിങിനോട് നേരിട്ടുള്ള രണ്ട് സെറ്റുകൾക്കാണ് സൈന പരാജയപ്പെട്ടത് എന്നാൽ ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണമെഡൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒളിംപിക്സ് വെള്ളി മെഡൽ നേടിയ പി

ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയ നീരജ് ചോപ്രയ്ക്കൊപ്പം ശിവപാൽ സിംഗും ഇന്ന് നടക്കുന്ന പുരുഷ വിഭാഗം ജാവലിൻ ത്രോ ഫൈനലിൽ മത്സരിക്കും

ഏഷ്യൻ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷ നുകൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഗവൺമെന്റ് ഇതര സംഘടനകൾ തുടങ്ങിയവയുടെ പ്രതിനിധികൾ സംബന്ധിക്കും

ജന്മനാടായ് ന്യൂയോർക്ക് സിറ്റിയിൽ ന്യൂമോണിയയെ തുടർന്നാണ് മരണം